പാലിക്കാനും പ്രധാന്മന്ത്രീയുടെ ആഹ്വാനം

പ്രോത്സാഹനാർത്ഥം കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു

ബിജെപിയിൽ ചേർന്നു

നാളെ രാവിലെ ഏഴ് മണിമുതൽ രാത്രി ഒമ്പത് മണിവരെ ജനങ്ങളോട് വീടുകളിൽ തന്നെ കഴിയാനാണ് ആഹ്വാനം വ്യാഴാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്യവേയാണ് ജ്റ്റ്ത്യ കർഫ്യൂ ആചരിക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തുതിൽ ് കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി സഹക്കരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ നാളെ വൈകിട്ട് അഞ്ച് പ്രമണിയ്ക്ക് രാജ്യത്തെ ജനങ്ങൾ ബെല്ലടിച്ചും കൈകൊട്ടീയും അഭിനന്ദിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

തമിഴ്നാട്ടിൽ സർക്കാർ ബസ് സർവീസുകളും മെട്രോ റെയിൽ സർവീസുകളും ഉണ്ടായിരിക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്

കേരളം കർഫ്യൂവിനെ പൂർണമായി പിന്തുണക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

ഡോക്ടർമാരും ആരോഗ്യവകുപ്പും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് സ്വയം പ്രതിരോധിക്കുന്നതോടൊപ്പം സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും രോഗബാധയിൽ രക്ഷിക്കണമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ നിന്ന് ആവശ്യപ്പെട്ടു

കാസർഗോട്ട് ആറു പേർ കണ്ണൂർ എറണാകുളം എന്നീ ജില്ലകളിൽ മൂന്നു പേർ എന്നിങ്ങനെയാണു രോഗം ബാധിച്ചവരുടെ കണക്ക്

ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരെല്ലാം ഗൾഫിൽനിന്നു വന്നവരാണെന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

അഹമ്മദാബാദിൽ രണ്ടും ഗാന്ധിനഗർ വഡോദര രാജകോട്ട് സൂററ്റ് എന്നിവിടങ്ങളിൽ ഓരോ കേസുകളുമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തതെന്ന് മുഖ്യമന്ത്രി വിജയ് രൂപാണി അഹമ്മദാബാദിൽ പറഞ്ഞു

മരണസംഖ്യയിൽ ഇറ്റലി ഇന്നലെ തന്നെ ചൈനയെ മറികടന്നിരുന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് മേഖലയിൽ രോഗബാധ തടയുന്നതിന് വേണ്ടി സംഭാവന നൽകുന്നത്

നിരോധനാജ്ഞ മംഗളൂരു കാസർകോട് ദേശീയപാത അടച്ചു

കാസർകോട് ഇന്നലെ ആറ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് കർണാടക ഇത്തരമൊരു തീരുമാനമെടുത്തത്

വിശദവിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

മലബാർ ദേവസ്വം ബോർഡിനു കീഴിലെ ക്ഷേത്രങ്ങളിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ലെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി

മറീന എലിയറ്റ് പാലവാക്കം തിരുവാൻമിയൂർ ബീച്ചുകളിലാണ് നിയന്ത്രണം

ഡൽഹിയിൽ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം വിശദാംശങ്ങളിലേക്ക്

വൻകിട ഇലക്ട്രോണിക് മേഖലയിൽ ഉൽപ്പാദന ആനുകൂല്യം നൽകാൻ തീരുമാനിച്ചതായി കേന്ദ്രമന്ത്രി രവിശങ്കർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

മരുന്നിന്റെ അനുബന്ധ ഘടകങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റുകൾക്കും സർക്കാർ ധനസഹായം നൽകും ആയുഷ് ദൌതൃത്തിന് കീഴിൽ രാജ്യത്ത് ആയുഷ് ആരോഗൃ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും മന്ത്രിസഭ അനുമതി നൽകി പരുത്തി കർഷകർക്ക് ഉണ്ടായ നഷ്ടം നികത്തുന്നതിന് താങ്ങുവില പദ്ധതി പ്രകാരം സഹായം അനുവദിക്കാനും കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ജ്യോതിരാദിത്യ സിന്ധൃയും പങ്കെടുത്തു മധ്യപ്രദേശിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ ബി ജി പി യുടെ നേതൃത്വത്തിൽ ശ്രമം തുടരുകയാണ് ഈ തിങ്കളാഴ്ച ബിജെപി നിയമസഭാകക്ഷിയോഗം ഭോപ്പാലിൽ പ്പേരും

യെസ് ബാങ്ക് സ്ഥാപകൻ റാണ കപൂറിനും കുടുംബാംഗങ്ങൾക്കും എതിരെ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് നരേഷിനെ ചോദൃം ചെയ്തത്